രാജ്യത്ത് രോഗമുക്തരുടെ എണ്ണം രോഗ്ബാധിതരെക്കാൾ കൂടുതലെന്ന് കേന്ദ്ര ആരോഗൃ മൃന്താലയം പ്രപതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിലും കുറവ്

രോഗമുക്തരുടെ എണ്ണം രോഗബാധിതരെക്കാൾ കൂടുതൽ വിശദംശങ്ങളുമായി ജോസ്ന

സി എം

നാവികസേനയുടെ ഐ

ഫ്രാൻസിന്റെ തുടർച്ചയായ പിന്തുണയെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്ന് വിദേശകാരൃ മന്ത്രാലയം വക്താവ് അരിന്ദം ബാഗ്ചി പറഞ്ഞു ഖത്തറിലെ ഫ്രഞ്ച് എംബസിയുമായി സഹകരിച്ച് നടത്തിയ സഹായത്തിനു ഖത്തറിനും അദ്ദേഹം നന്ദി അറിയിച്ചു

എറണാകുളം മലപ്പുറം കോഴിക്കോട് തീരുപ്പനന്തപുരം ജില്ലകളിലാണ് കൂടുതൽ രോഗബാധ സ്ഥിരീകരിച്ചത്

ഇതിനായി വിവിധ മന്ത്രാലയങ്ങൾ ഒരുമിച്ച് കൃത്യതയോടെ പ്രവർത്തിച്ചുവരുന്നതായും ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു

ടി ബി

ഏറ്റവും അടുത്ത ദിവസം തന്നെ സൌമ്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി ഇസ്രയേലിലെ ഇന്ത്യൻ എംബസി തുടങ്ങിക്കഴിഞ്ഞതായും മന്ത്രി വൃക്തമാക്കി

ലക്ഷദ്വീപിലും ഇടുക്കി തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം ജില്ലകളിലും ഇന്ന് യെല്ലോ അലെർട്ട് പ്രഖ്യാപിച്ചു

തെക്കു കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകൂപ്പ് അറിയിച്ചു മറ്റന്നാളോടെ മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളോട് വെള്ളിയാഴ്ച രാത്രിയ്ക്ക് മുൻപ് തീരത്തെത്താൻ നിർദേശം നൽകിയിട്ടുണ്ട്

ഖത്തറിൽ പ്രവർത്തിക്കുന്ന സംരംഭക്ത്വ സംവിധാനത്തെയും അക്കൌണ്ടിംഗ് മേഖലയേയും ശക്തിപ്പെടുത്തുന്നതിന് ഇരു സ്ഥാപനങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ധാരണാപത്രം സഹായിക്കും നികുതി ധനകാരൃ സേവനങ്ങൾ ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇൻസ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേർഡ് അക്കൌണ്ടൻസ് ഓഫ് ഇന്ത്യയിലെ അംഗങ്ങൾക്ക് ഖത്തറിൽ സേവനം ലഭ്യമാക്കാൻ ഇതിലൂടെ അവസരമുണ്ടാകും വിവിധ പരിപാടികളിലൂടെ ഖത്തറിൽ ഇന്ത്യൻ വൃവസായങ്ങൾക്ക് അവസരങ്ങൾ കണ്ടെത്താനും ഇതിലൂടെ സാധിക്കും

അസം ജനതയുടെ ജീവിതത്തിന്റെയും സംസ്കാരതിന്റെയും വൈവിധ്യ തലങ്ങൾ അദ്ദേഹത്തിന്റെ രചനകളിൽ പ്രതിഫലിച്ചിരുന്നതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു

കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു രാജീവ് ഗാന്ധി വധകേസ് അന്വേഷണത്തിൽ പ്രധാന പങ്ക് വഹിച്ച വൃക്തിയാണ് അദ്ദേഹം

കോവിഡ് വ്യാപനത്തിന്റെയും ലോക്ഡൌണിന്റെയും പശ്ചാത്തലത്തിൽ പെരുന്നാൾ നമസ്ക്കാരം വീടുകളിലാകും നടക്കുക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും വിശ്വാസികൾക്ക് പെരുന്നാൾ ആശംസകൾ നേർന്നു

ഇറച്ചിക്കടകളിലെ ആൾക്കൂട്ടം ഒഴിവാക്കാനായി പരമാവധി ഡോർ ഡെലിവറി പ്രോത്സാഹിപ്പിച്ച് അതിനാവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യണം കടയ്ക്ക് മുന്നിൽ സാമൂഹിക അകലം ഉൾപ്പെടെ എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിക്കണം

വാണിജ്യനിക്ഷേപ ചർച്ചകൾക്കായി ഇത്യ് ഉറ്റുനോക്കുകയാണെന്നും ഇന്ത്യ യുകെ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ സാമ്പത്തിക വളർച്ച്യ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള കരാറുകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു

സർക്കാർ അംഗീകൃത കോളേജുകളിൽ പഠിക്കുന്നവർക്കാണ് അവസരം

സേന അംഗങ്ങളുമായി സംവദിച്ച അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചു